സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉഡാൻ സർവീസുകൾ ഇന്നാരംഭിക്കും

രാവിലെ ഒൻപതിന് ഗവർണർ പി

തോമസ് ഐസക് അവതരിപ്പിക്കും ഫെബ്രുവരി ഏഴുവരെ ഒൻപത് ദിവസം സഭ സമ്മേളിക്കും നയ പ്രഖ്യാപനത്തിനും ബജറ്റ് അവതരണത്തിനും ഓരോ ദിവസവും നന്ദി പ്രമേയ ചർച്ചക്കും ബജറ്റിലെ പൊതു പ്രമേയ ചർച്ചക്കും മൂന്ന് ദിവസം വീതവും നീക്കി വെച്ചിട്ടുണ്ട്

വൈകീട്ട് ഏഴിന് ആകാശവാണിയും ദൂരദർശനും രാഷ്ട്രപതിയുടെ പ്രസംഗം തൽസ മയം പ്രക്ഷേപണം ചെയ്യും രാത്രി ഒൻപതരക്ക് ഇതിന്റെ പരിഭാഷ ആകാശവാണി നിലയങ്ങളിൽ കേൾക്കാം ദൂരദർശൻ രാഷ്ട്രപതി യുടെ പ്രസംഗത്തിന് ശേഷം പ്രാദേശിക ഭാഷയിൽ പ്രസംഗം സംപ്രേ ക്ഷണം ചെയ്യും

റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രമാഫോസയാണ് മുഖ്യാതിഥി നെൽസൺ മണ്ടേലയ്ക്കു ശേഷം റിപ്പബ്ലിക് ദിന പ്രേഡിൽ മുഖ്യാതിഥിയാകുന്ന രണ്ടാമത്തെ ദക്ഷി ണാഫ്രിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം ഇന്ന് രാവിലെ ന്യൂഡൽഹി യിലെത്തുന്ന അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീക രണം നൽകും

യൂത്ത് ഫോർ ഇകാലിറ്റി ജനഹിത ഏതാനും അഭിഭാഷകർ തുടങ്ങിയവരാണ് ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണി ക്കുന്നത് സിബിഐ ഡയറക്ടർ നിയമനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ഉന്നതാധികാര സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു പുതിയ മേധാവിയെ തീരുമാനിക്കാൻ അടുത്തയാഴ്ച്ച വീണ്ടും യോഗം ചേരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ അദ്ദേ ഹത്തിന് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് തുടങ്ങിയവർ അടങ്ങിയ സമിതിയാണ് സിബിഐ മേധാവിയെ തെരഞ്ഞെടുക്കുന്നത്

സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കോവളം ബേക്കൽ ജലപാത അടുത്ത വർഷം പ്പൂർത്തിയാക്കും തിരുവനന്തപുരത്ത് കരമന കളയിക്കാവിള നാലുവരി പാതയുടെ പ്രാവച്ചമ്പലം കൊടിനട റീച്ച് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മുഖ്യമന്ത്രി

സ്ഥലമെടുപ്പ് ഏറെ കുറെ പൂർത്തിയായി

കോവളം ബേക്കൽ ജലപാത ടൂറിസ്റ്റുകൾക്ക് മികച്ച ആകർഷ ണമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് പൂർത്തീകരിക്കുന്നത്

ഇവി ടങ്ങളിൽ സഞ്ചാരികൾക്കിറങ്ങാനും കാഴ്ച്ചകൾ കാണാനും നാടൻ ഭക്ഷണം ആസ്വദിക്കാനും സൌകര്യം ഉണ്ടായിരിക്കും റെയിൽ വിമാന സൌകര്യങ്ങളും വികസനത്തിന്റെ പാതയിലാണ്

സുധാകരൻ അറിയിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ വർഷവും കൃതൃമായ ലക്ഷ്യം നിശ്ചയിച്ച് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്ന് മന്ത്രി ഇ

ഓരോ മാസവും ഓരോ ജീവനക്കാരനും പ്രവർത്തന ലക്ഷ്യം തീരുമാനിച്ച് അതിന്റെ നടപ്പാക്കൽ നിരീക്ഷി ക്കണം തിരുവനന്തപുരത്ത് പൊതുമേഖലാ വൃവസായ സ്ഥാപനങ്ങ ളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂന്ന് മാസത്തിലൊരിക്കൽ ഓരോ പൊതുമേഖലാ സ്ഥാപനവും അവലോകന യോഗം നടത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു തിരുവല്ല വേങ്ങൽ പാടശേഖരത്ത് നെല്ലിന് കീടനാശിനി തളിക്കു ന്നതിനിടെ മരിച്ച രണ്ട് കർഷകത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകുമെന്ന് മന്ത്രി വി

അവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മരണ കാരണവും മരിച്ചവരുടെ കുടുംബ പശ്ചാത്തലവും സംബ ന്ധിച്ച വിദഗ്ധ റിപ്പോർട്ട് കൃഷി വകുപ്പ് ഗവൺമെന്റിന് സമർപ്പിക്കു മെന്നും മന്ത്രി പറഞ്ഞു കുറഞ്ഞ യാത്രാ നിരക്കിൽ ആഭ്യന്തര വിമാനയാത്ര നടത്താൻ സാധിക്കുന്ന ഉഡാൻ സർവ്വീസ് ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിക്കും

ബെങ്കലൂരു ചെന്നൈ ഹൂബ്ബള്ളിഗോവ എന്നിവിടങ്ങളിലേ ക്ക് ഇൻഡിഗോ എയർലൈൻസ് കമ്പനിയാണ് സർവ്വീസ് നടത്തു ന്നത് കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് രണ്ടാം വിജയം ഗുജറാത്തിനെ മറുപടിയില്ലാത്ത നാല് ഗോളിന് ആതിഥേയർ തോൽപ്പിച്ചു കേരളത്തിന്റെ അടുത്ത മത്സരം നാളെ സ്പോർട്സ് അതോറിറ്റി ഗുജറാത്തിനോടാണ് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം ദിനമായ ഇന്ന് രണ്ടു മത്സരങ്ങളുണ്ടാകും രാവിലെ ഏഴരക്ക് ആന്ധ്രാപ്രദേശ് ബംഗാൾ ഹോക്കി ഫെഡറേഷനെയും ഒൻപതിന് മണിപ്പൂർ പുതുച്ചേരിയെയും നേരിടും

മല്ലിക് സ്മാരക അഖിലേന്ത്യാ പൊലീസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അടുത്ത തിങ്കളാഴ്ച്ച മലപ്പുറത്ത് ആരംഭിക്കും

ഫെബ്രുവരി ഏഴു വരെയാണ് ടൂർണമെന്റ്

ആതിഥേയരെ ഒമ്പത് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് എ

കെ കൊൽക്കത്തയെ നേരിടും വൈകീട്ട് ഏഴര ക്കാണ് മത്സരം

അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ് കൂളിൽ ഇന്ന്ടവൈകിട്ട് മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്യും

പാപ്പിനിപ്പാറ യത്തീംഖാനയിൽ പതിനാലുകാരായ രണ്ട് വിദ്യാർത്ഥികളിലാണ് രോഗബാധ കണ്ടെത്തിയത് ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റൊരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പ്രതിരോധ വാക്സിൻ നൽകാത്തതാണ് ഇവരിൽ രോഗബാധയു ണ്ടാകാൻ കാരണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

ഹരിത കേരളം മിഷന്റെ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രചാരണത്തിന്റെ രണ്ടാംഘട്ടം നാളെ തുടങ്ങും ഇതിന്റെ ഹരിത നിയമാവലി ക്യാമ്പയിനും ഇതോടൊപ്പം തുടക്കമാകും സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി എ

മൊയ്തീൻ നിർവഹിക്കും എല്ലാ ജില്ലാ കേന്ദ്ര ങ്ങളിലും സംസ്ഥാന ലീഗൽ സർവ്വീസസ് അതോറിറ്റിയുടെ സഹക രണത്തോടെയും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും ശബരിമലയിൽ രണ്ട് യുവതികൾ ദർശനം നടത്തിയത് പൊലീസ് അകമ്പടിയോടെയാണെന്ന് പത്തനംതിട്ട് ജില്ലാ പൊലീസ് മേധാവി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി യുവതികളെ വിഐപി ഗേറ്റ് വഴി കടത്തിവിട്ടത് സുരക്ഷയുടെ ഭാഗമായാണെന്നും ശബരി മല നിരീക്ഷക സമിതി റിപ്പോർട്ടിന് മറുപടിയായി പൊലീസ് അറിയി നും കൊച്ചി ബ്രഹ്മപുരം ഖരമാലിന്യ പ്ലാന്റ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്ലാന്റുകളേക്കാൾ ഭേദമാണെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് ഡോ

ജ്യോതിമണി അഭിപ്രായ പ്പെട്ടു

നാളെ പ്രതി നിധി സമ്മേളനം മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസത്തെ സമ്മേളനം മറ്റ ന്നാൾ സമാപിക്കും

എട്ട് പരാതികളിൽ വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു